ഗവൺമെന്റ് തീരുമാനം

മാധ്യമ സ്വാതന്ത്രൃം ഉറപ്പാക്കാൻ ഗവൂൺമെന്റ് പ്രതിജ്ഞാബദ്ധമെന്ന് കേന്ദ്രമന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

പരീക്ഷാ തട്ടിപ്പ് സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് ഉട്ഹെക്കോടതി

പാലാരിവട്ടം മേൽപ്പാല് നീർമ്മാണ അഴിമതി കേസിൽ മരാമത്ത് മുൻ സെക്രട്ടറി ടി

സൂരജ് ഉൾപ്പെടെ നാലു പേർ അറസ്റ്റിൽ

നെഹ്റു ട്രോഫി വള്ളം കളിക്കും ചാമ്പ്യൻസ് ബോട്ട് ലീഗിനും നാളെ തുടക്കമാകും

വെസ്റ്റിൻഡീസിനെതിരായ രണ്ടാമത്തെയും അവസാനത്തെയും ക്രിക്കറ്റ് ടെസ്റ്റ് ഇന്ന് മത്സരം രാത്രി എട്ടിന് തുടങ്ങും

പഞ്ചാബ് നാഷണൽ ബാങ്ക്

ഏറ്റവും വലിയ രണ്ടാമത്തെ പൊതുമേഖലാ ബാങ്കാക്കി ഇതിനെ മാറ്റുകയാണ് ലക്ഷ്യമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു

ഇന്ത്യൻ ബാങ്ക് അലഹബാദ് ബാങ്ക് എന്നിവയും ഒന്നാകും

ആഗോള സാനിധ്യമുള്ള വലിയ ബാങ്കുകളാണ് ലക്ഷ്യമെന്ന് ്ടകേന്ദ്ര ധനമന്ത്രി പറഞ്ഞു

മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം ഉത്തരവാദിത്തതോടെയുള്ള സ്വാതന്ത്ര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു

കൊച്ചിയിൽ പുതിയ ഇന്ത്യ എന്ന മാധ്യമ സംവാദത്തിൽ മൂഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം കശ്മീരിൽ മാധ്യമങ്ങൾക്കീപ്പോൾ യാതൊരുവിധ വിലക്കുമില്ല ഓരോ ദിവസം കഴിയുന്ത്രോറും ഇവിടെ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ശ്രീ പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു

മനോരമ ന്യൂസ് കോൺക്ളേവ് വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ അതിവേഗം പരിവർത്തനത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ഈ മാറ്റം രാജ്യത്തിന്റെ സമഗ്ര പുരോഗതിയ്ക്ക് ഏറെ സഹായകമാണെന്ന് ശ്രീ നരേന്ദ്ര മോദി അഭിപ്രായപ്പെട്ടു

വികാസത്തിനും യോഗയുടെ മികച സംഭാവന നൽകിയവർക്കുള്ള യോഗ പുരസ്ക്കാരങ്ങൾ ന്യൂഡൽഹിയിൽ സമ്മാനിക്കുകയായിരുന്നു അദ്ദേഹം

കേസിലെ നാലാം പ്രതി സഫീർ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു കോടതി

സമീപകാലത്ത് നടന്ന എല്ലാ നിയമനങ്ങളും അന്വേഷിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു

സി പരീക്ഷാ തട്ടിപ്പ് സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശത്തെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സ്വാഗതം ചെയ്തു

എസ് സി പരീക്ഷാ തട്ടിപ്പിനെപ്പറ്റി സി ബി ഐയെക്കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് പ്രതിപക്ഷം നിരന്തരം ആവശ്യപ്പെട്ടു വരികയാണ് ഇപ്പോൾ ഹൈക്കോടതിയും അതേ സ്വഭാവത്തിലുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് ഇനിയെങ്കിലും ഗവൺമെന്റ് പി എസ് സി തട്ടിപ്പിനെപ്പറ്റിയുള്ള അന്വേഷണം സി ബി

എസ്

യുടെ വിശ്വാസ്യത തകർത്തവർക്കും അതിന് കൂട്ടു നിന്നവർക്കുമെതിരെ ശക്തമായ നിയമനടപടി അനിവാരൃമാണെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞു

ഇദ്ദേഹത്തെ കൂടാതെ മൂന്ന് പേരെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാലം നിർമ്മിച്ച കമ്പനിയുടെ എം

അഴിമതി ഫണ്ട് ദുർവിനിയോഗം ഗൂഡാലോചന തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെയുള്ള കുറ്റം

തൊഴിൽ ചൂഷണവും തട്ടിപ്പും തടയുന്നത് സംബന്ധിച്ച് തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച രണ്ട് ദിവസത്തെ സെമിനാറിന് ശേഷം വാർത്താ സമ്മേളനത്തിലാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അമൃത് ലുഗനും ഡയറക്ടർ കേണൽ രാഹുൽദത്തും ഇക്കാര്യം അറിയിച്ചത് ഓവർസീസ് എംപ്ലോയ്മെന്റ് ആന്റ് പ്രൊട്ടക്ടറേറ്റ് ജനറൽ ഓഫ് എമിഗ്രന്റ്സ് വിഭാഗവും നോർക്ക വകുപ്പും സംയുക്തമായാണ് സെമിനാർ സംഘടിപ്പിച്ചത് പഞ്ചായത്ത് തലത്തിൽ ബോധവത്കരണം സംഘടിപ്പിക്കേണ്ടതുണ്ടെന്നും ഇതിനായി കുടുംബശ്രീയുടെ സേവനം പ്രയോജനപ്പെടുത്തുന്നത് പരിഗണിക്കുമെന്നും അവർ പറഞ്ഞു

കുട്ടനാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ പാലമായിമാറു മെന്ന് മന്ത്രി പറഞ്ഞു ഗവർണർ ആരോഗ്യ സമ്പ്രദായങ്ങൾ പരസ്പരം അംഗീകരിക്കാത്തത് വ്യാജവൈദ്യൻമാർ ചൂഷ്ണം ചെയ്യുന്നുവെന്ന് ഗവർണർ ജസ്റ്റിസ്പി

കേരള ആരോഗ്യ ശാസ്ത്ര സർവകലാശാലയിൽ പതിനൊന്നാമത് ബിരുദ്ദാന ചടങ്ങിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം യോഗ്യരായ ഡോക്ടർമാർ വിവിധ ആരോഗ്യ സമ്പ്രദായങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള പഠനവും ഗവേഷണവും നടത്തുന്നത് പരിഗണിക്കണമെന്ന് ഗവർണർ നിർദേശിച്ചു സ്ഥാനക്കയറ്റും കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഹൃഷികേഷ് റോയ് ഉൾപ്പെടെ നാലു പേരെ സൂപ്രിം കോടതി ജഡ്ജിമാരായി നിയമിക്കാൻ ശുപാർശ്ശ സൂപ്രീം കോടതി കൊളിജിയത്തിന്റേതാണ് തീരുമാനം പാലാ നിഷ ജോസ് കെ മാണി പാലാ നിയമസഭാ ഉപതിരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ നാളെ ചേരുന്ന യു ഡി എഫ് യോഗത്തിൽ നിഷ ജോസ് കെ മാണിയുടെ പേര് നിർദേശിക്കാൻ കേരളാ കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗം തീരുമാനിച്ചു ഇന്ന് പാലായിൽ ചേർന്ന യോഗം നിഷ ജോസ് കെ മാണിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് അംഗീകാരം നൽകി

പാലായിൽ ബിജെപി തന്നെ മൽസരിക്കുമെന്ന് യോഗശേഷം സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻ പിള്ള പറഞ്ഞു

സുധാകരൻ എറണാകുളത്ത് വൈറ്റിലയിലേയും കുണ്ടന്നൂരിലേയും സർവ്വീസ് റോഡു കൾ കോൺക്രീറ്റ് ട്ടൈലുക്ൾ വിരിച്ച് രണ്ടാഴ്ചയ്ക്കുള്ളിൽ പൂർത്തീകരി ക്കാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി ജി സുധാകരൻ ഈ ്യർണ്ട് മേൽപ്പാലങ്ങളും നിശ്ചിത സമയത്ത് തന്നെ പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുമെന്ന് മന്ത്രി വാർത്താകുറിപ്പിൽ അറിയിച്ചു കണ്ണൂർ ഇൻട്രോ പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള സംസ്ഥാനത്തെ ആദ്യ ഡിജിറ്റൽ ലൈബ്രറി ഇനി കണ്ണൂർ ജില്ലയിലെ പായം പഞ്ചായത്തിന് സ്വന്തം കണ്ണൂർ ജില്ലയിലെ പായത്തെ ഡിജിറ്റൽ ലൈബ്രറി ആന്റ് റീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം മറ്റന്നാൾ മുഖൃമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ പ്രതിനിധി കെ

ശശിധരൻ

സംസ്ഥാനത്തെ വള്ളംകളികളെ കോർത്തിണക്കി തയ്യാറാക്കിയിട്ടുള്ള ചാമ്പ്യൻസ് ബ്രോട്ട് ലീഗിന്റെ ആദ്യ മത്സരവും നെഹ്റു ട്രോഫി വള്ളംകളിയാണ് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ പ്രതിനിധി ആർ

ദൃക്സാക്ഷി വിവരണം ആകാശവാണി പ്രക്ഷേപണം ചെയ്യും